പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു

പശ്ചിമബംഗാളിൽ പണിമുട്ക്കുന്ന ഡോക്ടർമാരും ഗവൺമെൻ്റുമായുള്ളൂ ചൂർച്ച അവസാനിച്ചു

ലോട്ടറി നികുതി ഏകീകരണം തടയണമെന്ന് കേരള നിയമസഭ പ്രമേയത്തിലൂടെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു

തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയായിരുന്നു ഇന്ന് നടന്നത് കൂടുതൽ വിവരങ്ങളുമായി തുളസീദാസ്

സത്യപ്പ്പതിജ്ഞ ചെയ്യാൻ ശ്രീമോദിയെ സെക്രട്ടറി ജനറൽ ക്ഷണിച്ച്പോൾ എൻ

പ്രോടേം സ്പീക്കർ ഡോ

ഹർഷവർദ്ധൻ ശ്രീപദ്നായിക് അശിനി ചൌബേ എന്നിവർ സംസ്കൃതത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഉച്ചയ്ക്ക് ശേഷം ഡൽഹി ബീഹാർ ഛത്തീസ്ഘട്ട് ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ജമ്മുകാശ്മീർ കർണ്ണാടക കേരളം എന്നിവിടങ്ങളിൽ നിന്നുളളവർ സത്യപ്രതിജ്ഞ ചെയ്തു സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രോംടേം സ്പീക്കറെ സഹായിക്കുന്ന പാനലിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ശ്രീ ബ്രിജ് ഭൂഷൺ ശരൺസിംഗ് ഭർതൃഹരി മഹ്തബ് എന്നിവർ അംഗങ്ങളായിരുന്നു ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിക്ക് ശേഷം അടുത്തതായി ശ്രീ

ശശി തരൂർ ഒഴികെയുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു

പിമാരായ രാജ്മോഹൻ ഉണ്ണിത്താൻ ശ്രീകണ്ഠൻ ആരീഫ് എന്നിവർ മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു ന്യൂസ് ടെസ്ക് ആകാശവാണി

പ്രതിപക്ഷം അംഗസംഖ്യയിൽ കുറവാണ്ടെന്നത്ത്ൽ വിഷമിക്കേണ്ടതില്ലെന്നും സഭാനടപടികളിൽ സജീപ്പമായി പങ്കെടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചർച്ചകളിൽ ക്ട്ല്ലാ് പാർട്ടികളുടെയും പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുവെന്ന് ശ്രീ

പാർലമെന്റ് സുഗമമായി പ്രവർത്തിച്ചാൽ ഗവൺമെന്റിന് ജനാഭിലാഷത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാകുമെന്നും ശ്രീ

എയിംസിലെ ട്രോമാസെന്ററിലെ ഒരു ജൂനിയർ ഡോക്ടറെ ഇന്ന് രാവിലെ കൈയേറ്റം ചെയ്തതിനെത്തുടർന്നാണ് ഡോക്ടർമാർ പ്രതിഷേധം നടത്തിയത് നേരത്തെ എയിംസിലെ ഡോക്ടർമാർ പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്നാണ് തീരുമാനിച്ചിരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് കാമ്പസിൽ ഡോക്ടർമാർ പ്രതിഷേധ മാർച്ചും നടത്തി

വിക്ടോറിയ ഗവൺമെന്റ് ആശുപ്പിതിയിൽ സമരം നടത്തിയ റസിഡന്റ് ഡോക്ടേഴ്സ് അസ്സോസീയേഷൻ അംഗങ്ങൾ ഒ

പ്രതീകാത്മക സമരത്തിന് ശേഷം രോഗികൾക്ക് ആവശ്യമായ പരിശോധനകൾ നടത്തണമെന്ന ആരോഗ്യമന്ത്രി ശിവാനന്ദ പട്ടേലിന്റെ അഭ്യർത്ഥന ഡോക്ടേഴ്സ് അസോസിയേഷൻ തള്ളിക്കളഞ്ഞു ദൂരെസ്ഥലങ്ങളിൽ നിന്ന് വന്ന രോഗികൾ ചികിത്സ ലഭിക്കാതെ ആശുപത്രികളിൽ അകപ്പെട്ടതായി പ്രത്യേക ലേഖകൻ പറഞ്ഞു

പശ്ചിമബംഗാളിൽ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഐ എം

ഗവൺമെന്റ് സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർ ഒ പി വിഭാഗവും മറ്റ് അവശ്യസേവനങ്ങൾ അല്ലാത്ത വിഭാഗങ്ങളുമാണ് ബഹിഷ്കരിച്ചത്

പശ്ചിമബംഗാളിൽ രോഗിയുടെ ബന്ധുക്കൾ ഡോക്ടർമാരെ ആക്രമിച്ചതിനെ ത്ത്ടർന്ന് ഡോക്ടർമാരുടെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹർജി സമർപ്പിച്ചത്

ഡോക്ടർമാരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചതായി മുഖ്യമന്ത്രി മമത ബാനർജി യോഗത്തിന് ശേഷം പറഞ്ഞു ഡോക്ടർമാരുടെ സുരക്ഷയടക്കം ഉറപ്പാക്കും സമരം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഡോക്ടർമാരുടെ തീരുമാനം വൈകാതെ അറിയിക്കും സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നിന്നുളള ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു കൊൽക്കത്തയിലെ എൻ

ഡോക്ടർമാർക്കെതിരായ ആക്രമണത്തെ മുഖ്യമന്ത്രി യോഗത്തിൽ അപലപിച്ചു

ഒരു ഭീകരനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല

ഭീകരരുടെ സാന്നിദ്ധ്യം ഉണ്ടെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സൈനികർ പരിശോധന നടത്തിയപ്പോഴാണ് ഏറ്റുമുട്ടലുണ്ടായത് ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു

സംസ്ഥാനത്തെ പൊതുവികാരമായി ഇത് അവതരിപ്പിക്കണമെന്നും നിർദ്ദിഷ്ട നികുതി ഏകീകരണം തടയണമെന്നും സഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു

ഇത് ഏകീകരിച്ച് രണ്ടു ലോട്ടറികൾക്കും ഒരേ നികുതിയാക്കുന്നതിന് ജി

ടി കൌൺസിലിൽ നീക്കം നടക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ധനമന്ത്രി പ്രമേയം അവതരിപ്പിച്ചത്

എവിൻ ലൂയിസ് ഷായ് ഹോപ് ഷിംറോൺ ഹെറ്റ് മെയർ എന്നിവർ അർദ്ധസെഞ്ചറി നേടി

ബംഗ്ലാദേശിനുവേണ്ടി മുസ്താഫിർ റഹ്മാൻ സെയ്ഫുദീൻ എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി

സ്ഥിതിഗതികൾ വിലയിരുത്തിയ കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ പ്രത്യേക തീവ്രപരിചരണ വിഭാഗം ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചിരുന്നു നിരീക്ഷണത്തിന് ഡോക്ക്ടർമാരുടെ സംഘം പ്രവർത്തിക്കുന്നുണ്ട്

ഇതേത്തുടർന്ന് കച്ചിലും പത്താൻ ബെനസ്കന്ത സബർകന്ത ജില്ല്കളിലും കനത്ത മഴ പെയ്യുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു

ഈ വർഷം ഏറ്റവും അധികം ഭക്തജനങ്ങൾ എത്തിയത് ശനിയാഴ്ചയായിരുന്നു രാജ്യമെമ്പാടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒഴിവ് കാലമായതിനാലാണ് ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നതെന്ന് ക്ഷേത്രത്തിലെ ഡെപ്യൂട്ടി സി

എൽ

കൌൺസിലർമാരും ബി ജെ

ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ബി ജെ പി നേതാക്കളായ കൈലാഷ് വിജയ് വർഗ്ഗിയയുടെയും മുഗുൾ റോയിയുടെയും സാന്നിധ്യത്തിലാണ് ബി ജെ